ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും

ജെ

യുടെ ദ്വിദിന ദേശീയ കൌൺസിൽ യോഗത്തിന് ഇന്ന് സമാപനം ന്യൂഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇന്നലെ ആരംഭിച്ച സമ്മേളനം ബി ജെ

ദേശീയ പ്രസിഡന്റ് അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത്

പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ ബി ജെ

മുഖ്യ മന്ത്രിമാർ എം

മാർ മുതിർന്ന പാർട്ടി നേത്രാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ഉദ്ഘാടന പ്രസംഗത്തിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച ശ്രീ അമിത്ഷാ ബി ജെ

യെ വ്ടീണ്ടും അധികാരത്തിലെത്തിക്കുന്നതിന് ശക്തമായി പ്രയത്നം നടത്ത്ണുമെന്ന് പാർട്ടി പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു മുന്നോക്കുക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം നൽകുന്നതിനുള്ള തീരുമാനം രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്നും ശ്രീ

വർഷങ്ങളായി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മുന്നോക്ക സംവരണത്തെ ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് സുതാര്യവും അഴിമതിരഹിതവും മികച്ചതുമാർന്ന ഭരണം കാഴ്ചവെയ്ക്കുന്ന ബി ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പര്യടനത്തിന്റെ ഭാഗമായി ബി ജെ

നവ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി ബി ജെ

യുടെ സാന്നിധ്യം രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കണമെന്നും ശ്രീ

സാമ്പത്തികമായി പിന്നാക്കം നില്ക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവരണം എന്ന പേരിൽ നല്കിയ ഫെയ്സ്ബുക്ക് പോസ്റ്റിലാണ് ധനകാര്യമന്ത്രിയുടെ പ്രതികരണം ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന് സഹായിക്കുകയും പൊതുവിഭാഗത്തിലെ പാവപ്പെട്ടവരെ ഏറ്റവും അധികം അംഗീകരിക്കുകയും ചെയ്യുന്ന ഭർണഘടനാ ഭേദഗതിയാണ് ഇതെന്നും ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭ്യീപ്പൊയപ്പെട്ടു എല്ലാവർക്കും തുല്യ അവസരങ്ങളും തുല്യൂനീതിയും ഉറപ്പുവരുത്തുമെന്നാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ഉസ്ബക്കിസ്ഥാനിലെ സമാർഖണ്ടിൽ ഇന്തോ മധ്യ ഏഷ്യൻ ആദ്യവട്ട ചർച്ചയിലും മന്ത്രി പങ്കെടുക്കും ഉസ്ബക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ അസീസ് കാമിലോവുമായി കേന്ദ്രമന്ത്രി അധ്യക്ഷ സ്ഥാനം പങ്കിടും

മധ്യ ഏഷ്യൻ പ്രവിശ്യയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഇടപെടൽ ഗണ്യമായി വർധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും ചർച്ച നടത്തും

കര നാവിക വ്യോമസേനകളിൽ സേവനമനുഷ്ഠിച്ച വന്ദ്യവയോധികരെ സേന ആദരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപരിപാടി ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഡൽഹി മനേക്ഷാ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി നിർമ്മലാ സീതാരാമുൻ സംബന്ധിക്കും

ദക്ഷിണ കൊറിയ യു

ഇ ഉക്രെയിൻ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര പ്രതിനിധി സംഘങ്ങളുമായും അദ്ദേഹം ചർച്ച നടത്തും

ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഞ്ഞുവീഴ്ചയുടെ ആഘാതം സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു

കൂടുതൽ വിവരങ്ങളുമായി അരുൺ കുമാർ

താഴെയുള്ളവരുടെ മീറ്റർ എയർപിസ്റ്റൽ വിഭാഗത്തിൽ തെലങ്കാനയുടെ ധനുഷ് ശ്രീകാന്ത് രണ്ടുതവണ ലോക ജൂനിയർ വെങ്കലമെഡൽ ജേതാവായ് പഞ്ചാബിന്റെ അർജുൻ ബാബുട്ടയെ പരാജയപ്പെടുത്തി

മൂന്നു പേർക്ക് പരിക്കേറ്റു അതിശൈത്യത്തെ തുടർന്നുള്ള കനത്ത മഞ്ഞുവീഴ്ച കാരണം സ്വിറ്റ്സർലൻഡ് അടക്കം യൂറോപ്പ് ഒട്ടാകെ ജനജീവിതം ദൂസ്സഹമാണ് റോഡൂകൾ മഞ്ഞിൽ മൂടിയതിനെ തൂടർന്ന് ഗതാഗതം സ്തംഭിച്ചു

ഉഭയകക്ഷി സഹകരണത്തിലും രാജ്യരക്ഷ വിദേശനയം എന്നീ രംഗങ്ങളിലും ഇരു രാജ്യങ്ങളും കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളുടെ തുടർച്ചയായി നടക്കുന്ന സമ്മേളനമാണിത് സമഗ്രവും സമാധാനപരവുമായ ഇന്ത്യ പസഫിക് മേഖലാ വികസനം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ആശയവിനിമയം നടത്തി

നംഗഹാർ പ്രവിശ്യയിലായിരുന്നു ആക്രമണം അമേരിക്കയുമായി ചേർന്ന് അഫ്ഗാൻ ദേശീയസുരക്ഷാസേനയാണ് ആക്രമണം നടത്തിയത്

തീർത്ഥാടകരുടെ ഒരുക്കങ്ങൾ സുരക്ഷയും സൌകര്യവും മുൻനിർത്തി വിവിധ വകുപ്പുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലയിലെ മകരവിളക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം ഒരുക്കുന്നത്

പൊതുമരാമത്ത് വകുപ്പ് പാഞ്ചാലിമേട്ടിലും പുല്ലുമേട്ടിലും ബാരിക്കേഡുകൾ നിർമ്മിക്കും

എസ് ആർ ടി

ഉദ്ഘാടനം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രി കോമ്പൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

കേരള സ്റ്റാർട്ട് അപ്പ് മിഷന്റെ കളമശ്ശേരിയിലെ ടെക്നോളജി ഇന്നവേഷൻ സോണിലാണ് അന്തർദ്ദേശീയ നിലവാരത്തിൽ ഒരുലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര അടിയിലാണ് സമുച്ചയം തയ്യാറാക്കിയിരിക്കുന്നത്

കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥാപിച്ച പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഷ്രെഡിംഗ് യൂണിറ്റികളിലൂടെ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൂടി പ്രയോജനപ്പെടുത്താനാകുമെന്നും വീട്ടിലെത്തുന്ന ഹരിതകർമ സേനാംഗങ്ങൾക്ക് ഉപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് കൈമാറാൻ വിമുഖത കാട്ടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഇതുവര്ർ കളികളുടെ ചുരുക്കപ്പട്ടിക പുറത്ത് പിട്ടിട്ടില്ല മഹേന്ദ്രസ്ട്രാഹ്ട്ട് ധോണി ഏകദിന പരമ്പരയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്